ജെ

മുഹമ്മദ് സൊലിഹിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

ഒരാഴ്ചക്കകം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി

പ്രളയദുരിതാശ്വാസത്തിന് സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും

ജെ പി പ്രവർത്തകരുടെ കൂറ്റൻ റാലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും ജനസംഘത്തിന്റെ സഹസ്ഥാപകനും പാർട്ടിയുടെ മാർഗ്ഗദർശിയുമായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായുടെ ജന്മവാർഷികത്തോടനുബന്ധി ച്ചാണ് റാലി സംഘടിപ്പിക്കുന്നത് പത്ത് ലക്ഷത്തോളം പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കും റാലിയോടനുബന്ധിച്ച് പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്

ജെ

യുടെ വളർച്ചയുടെ നാൾവഴികൾ പ്രദർശനത്തിൽ വീക്ഷിക്കാം

സൊലിഹിന്റെ നേതൃത്വത്തിൽ ദ്വീപിൽ ജന്നാിധിപത്യം ശക്തിപ്പെടട്ടെയെന്ന് ശ്രീ

ആശംസകൾക്ക് മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുക്കുമ്മദ് സൊലിഹ് ശ്രീ നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു സ്ഥാഹൃദം ഊട്ടി ഉറപ്പിക്കാൻ ഇരുനേതാക്കളും ധാരണയായുത്യി വിദേശകാര്യ മന്ത്രാലയം വാർത്താ കുറിപ്പിൽ അറിയിച്ചു

ബിജെപി നേതാവ് അശ്വിനി ഉപാധ്യായ സമർപ്പിച്ച പൊതുതാൽപരൃ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ ഡി

എംപിമാർ എംഎൽഎമാർ എംഎൽസിമാർ എന്നിവരെ അഭിഭാഷക പ്രാക്ടീസിൽ നിന്ന് വിലക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഗവൺമെന്റ് ജീവനക്കാരെപ്പോലെ നിയമസഭാംഗങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി

പിഎച്ച്ഡി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് ഡി

അഗർവാൾ ഇന്നലെ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

കേന്ദ്ര ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിദേശനാണയ ശേഖരം കൂട്ടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതായും ശ്രീ

തിരുപ്പതിയിൽ ഇന്ത്യൻ പാചക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആദ്ദേഹ്ട് നെല്ലൂരിലും കിഴക്കൻ ഗോദാവരിയിലും രണ്ടു വികസൻ പ്രോജക്ടുകളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു

കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം സംബന്ധിച്ചു

വിവിധ തലത്തിലുള്ള വില നിർണ്ണയ രീതി പ്രയോജനപ്പെടുത്തി മൾട്ടി സെക്യൂരിറ്റി ലേലത്തിലൂടെയാകും ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങുകയെന്നും ബാങ്കിന്റെ അറിയിപ്പിലുണ്ട്

നിലേഷ് കബ്രാളിന് ഊർജ്ജം ക്രമസമാധാനം നീതിന്യായം ലെജിസ്ലേറ്റീവ് വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത്

ഇരുവരും മന്ത്രിമാരായി ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്

കേന്ദ്ര വിദഗ്ദ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി സ്വീകരിക്കുമെന്ന് മിസോറ്റ് ഗ്ലീപ്പർണർ കുമ്മനം രാജശേഖരനെ പ്രധാനമന്ത്രി അറിയിച്ചു് പ്രിളയാനന്തര പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളോട് ക്രേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണയും യോജിപ്പുമാണുള്ളത് കൃത്യസമയത്ത് ഇടപെടുകയും അതീവ താല്പരൃത്തോടെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും പുനർനിർമ്മാണത്തിനും തുടർന്നും സഹായം നല്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഭൌതിക നാശനഷ്ടങ്ങൾക്കൊപ്പം പൈതൃക കേന്ദ്രങ്ങൾക്കുണ്ടായ നഷ്ടം കൂടി പഠന വിധേയമാക്കണമെന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് കുമ്മനം രാജശേഖരൻ അറിയിച്ചു ഇക്കാരൃത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ശ്രീ

സംഘത്തലവനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ സ്പെഷൃൽ സെക്രട്ടറിയുമായ ബി

ശർമ്മ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചതാണ് ഇക്കാര്യം കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

അപ്രതീക്ഷിത മഹാ പ്രളയത്തിൽപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങൾ കുറ്റമറ്റതായിരുന്നുവെന്ന് സംഘത്തലവൻ ബി

ക്യാമ്പുകളെപ്പറ്റിയും രക്ഷാപ്രവർത്തനം സംബന്ധിച്ചും പരാതികൾ ലഭിച്ചില്ല

ജനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രളയത്തിന്റെ രൂക്ഷത വിലയിരുത്തിയത് അർഹമായ കേന്ദ്ര സഹായം ലഭ്യമാകുന്ന വിധത്തിലുള്ള റിപ്പോർട്ട് ഏഴ് ദിവസത്തിനകം കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് ശ്രീ

പ്രളയത്തിൽ തകർന്ന കേരളത്തെ പൂർണ്ണമായി പുതുക്കിപണിയുന്നതിനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും കേന്ദ്രത്തിൽ നിന്ന് സ്പെഷ്യൽ പാക്കേജ് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനം തയ്യാറാക്കുകയാണെന്നും ചീഫ് സെക്രട്ടല്ലി ്ട്ടൊം ജോസ് സംഘത്തെ അറിയിച്ചു

തിരുവനന്തപുരത്ത് വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ദുർബ്ബല വിഭാഗങ്ങൾക്ക് ജീവനോപാധി പുനസ്ഥാപിക്കാൻ നിർദ്ദേശങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ആസൂത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യും കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്

ശക്തമായ മഴ ലഭിക്കുമെന്ന് സ്ഥലവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് യെല്ലോ അലെർട്ട് പ്രഖ്യാപിക്കുന്നത്

കൃഷിനാശം വിലയിരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

റെയൽ മാഡ്രിഡിന് മൂന്നാം ചാമ്പ്യൻഷിപ്പ് കിരീടം നേടികൊടുത്തും മോഡ്രിച്ചാണ് പോർച്ചുഗൽ താരം ക്രിസ്റ്റിയാനോ റോണാൾഡോയെയും ഈജിപ്തിന്റെ മുഹമ്മദ് സാലെയെയും പിന്നിലാക്കിയാണ് മോഡ്രിച്ചിന്റെ ചരിത്ര നേട്ടം

ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സാലെയ്ക്കാണ് മികച്ച ഗോൾ നേടിയതിനുള്ള പുരസ്കാരം മികച്ച വനിതാ താരമായി ബ്രസീലിന്റെ മാർത്ത തെരഞ്ഞെടുക്കപ്പെട്ടു ബെൽജിയത്തിന്റെ തിബോ കോർട്ടോയാണ് മികച്ച ഗോൾ കീപ്പർ

മികച്ച വനിതാ പരിശീലകയായി ഫ്രഞ്ച് ക്ലബ്ബിന്റെ റെയ്നോൾഡ് പെട്രോസിനെ തെരഞ്ഞെടുത്തു

ആഭ്യന്തര സുരക്ഷാരംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കുന്ന് കരാറിൽ ഇരു രാജൃങ്ങളും തമ്മിൽ ഒപ്പു വയ്ക്കും

ഓഹരി ഉടമകളിൽ നിന്ന് തീയതി നീട്ടണമെന്ന് അപേക്ഷ ലഭിച്ചിരുന്നതായി ധനമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു